വന്ദേ ഭാരത് ദൌത്യത്തിന്റെ മൂന്നാം ജിട്ടും ഇന്നുമുതൽ ആരംഭിക്കും

ഏറ്റവും കൂടൂതൽ രോഗബാധിതർ മഹാരാഷ്ട്രയിൽ

സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനത്തിന് ഇന്ന് അർധരാത്രിമുതൽ തുടക്കം

ഇന്ന് മുതൽ നിരീക്ഷണം കൂടുതൽ കർശനമാക്കും

തുറക്കാൻ തീരുമാനിച്ച ആരാധനാലയങ്ങളും ഹ്ടോട്ടില്ലുക്ളും മാളുകളും ഇന്നലെ ശുചീകരിച്ചു കണ്ടെയ്ൻമെന്റ് ഹോട്ട്സ്പ്പോട്ട് ഒഴികെയുള്ള ഇടങ്ങളിൽ സർക്കാർ ഓഫീസുകൾ ഇന്നലെ സ്പൂർണതോതിൽ പ്രവർത്തനം തുടങ്ങി

കണ്ടെയ്ൻമെന്റ് സോണിൽ അതത് ജില്ലയിലെ ജീവനക്കാരുടെ സേവനമാണ് പ്രയോജനപ്പെടുത്തിയത്

ഗൾഫ് രാജ്യങ്ങൾക്കു പുറമേ സിംഗപ്പൂർ മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും സർവീസ് ഉണ്ടാകും

ദോഹ ദമാം റിയാദ് മസ്ക്കറ്റ് ദുബായ് എന്നിവിടങ്ങളിൽ നിന്നായി ഏഴ് വിമാനങ്ങളാണ് എത്തുക ഇന്ന് രാത്രി ദോഹയിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കണ്ണൂരിലെത്തും

കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ മഹാരാഷ്ട്രയാണ് ഇപ്പോഴും മുന്നിലുള്ളത്

രോഗം സ്ഥിരികരിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഒരാൾ ഇന്നലെ മരിച്ചതായി മന്ത്രി കെ

മുഖ്യമന്ത്രിക്ക് ഞായറാഴ്ച മുതൽ ശാരീരികാസ്വാസ്ഥ്യം ഉണ്ടെന്ന് അധികൃതർ അറിയിച്ചു

രാജ്യത്തെ എല്ലാ സൈനിക ആശുപത്രികളും പൂർണ്ണമായി പ്രവർത്തന ക്ഷമമാണെന്ന് കരസേന ട്വീറ്റ് ചെയ്തു

രോഗികളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ബ്രസീലിൽ രോഗബാധിതരുടെ എണ്ണം ഏഴ് ലക്ഷം കവിഞ്ഞു

തെക്ക്ൻ കർണാടകം തമിഴ്നാടിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾ ബംഗാൾ ഉൾക്കിട്ടുലിന്റെ തെക്കു പടിഞ്ഞാറ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാലവർഷ് എത്തിയതായി കേന്ദ്ര ഭൌമ ശാസ്ത്ര മന്ത്രാലയം വ്യക്തമാക്കി

ആലപ്പുഴ എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു

ഇതര സംസ്ഥാനങ്ങളിൽനിന്നുള്ള ബോട്ടുകൾ അതത് സ്ഥലങ്ങളിലേക്ക് മടങ്ങി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

മഹാരാഷ്ട്രയിലെ തീരദേശത്ത് ഇത് വ്യാപക മഴയ്ക്ക് കാരണമാകും

സ്മാർട്ട് വൈദ്യുതി വാട്ടർ മീറ്റർ അഡാപ്റ്റീവ് ട്രാഫിക് കൺട്രോളിംഗ് ഊർജ്ജക്ഷമമായ എൽഇഡി സ്ട്രീറ്റ് ലൈറ്റ് വിതാനം എന്നിവ നിരീക്ഷിക്കുന്നതിനും സർക്കാരിന്റെ വിവിധ പ്രവർത്തനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനും ഐ

ഡൽഹി സ്വദേശികൾക്കു മാത്രമേട്ടച്ചികിത്സ നൽകാനാവൂ എന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തിരുത്തിയാണ് ഗവർണറുടെ നിർദ്ദേശം

ഷോപ്പിയാനിലെ പിഞ്ചോറ മേഖലയിൽ ഇന്നലെ പുലർച്ചയാണ് ഏറ്റുമുട്ടലുണ്ടായത് സംഭവത്തിൽ മൂന്നു സുരക്ഷാ സൈനികർക്ക് പരിക്കേറ്റു ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരരാണ് കൊല്ലപ്പെട്ടത്